കൊച്ചി മരടിലെ ഫ്ളാറ്റിൽനിന്ന് താമസക്കാർ ഒഴിയുന്നതിന് സമയ പരിധി ഇന്ന് വരെ സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെ ടുപ്പിന് നാമനിർദ്ദേശപത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് അവ സാനിക്കും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവു മായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുമെന്ന് ടിക്കാറാം മീണ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽനിന്ന് മലയാളിതാരം പി

ചിത്ര ഫൈനൽ കാണാതെ പുറത്ത്

അഹമ്മദാബാദിൽ സ്വച്ഛ് ഭാരത് ദിവസ് പരിപാടിയിൽവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാണയം പുറത്തിറക്കിയത്

ഐകൃരാഷ്ട്രസഭാ ആസ്ഥാനത്തടക്കം ലോകത്തിന്റെ വിവിധ ഭാഗ ങ്ങളിൽ ഗാന്ധിയൻ ആശയങ്ങളുടെ മഹത്വം ഉയർത്തിപ്പിടിച്ച് അനുസ്മ രണ പരിപാടികൾ സംഘടിപ്പിച്ചു സമാധാനത്തിന്റെ ആഗോള ദൂതനായ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഐക്യരാഷ്ട്രസഭപോലെ സംഘടനകൾക്ക് പ്രചോദനമെന്ന് സെക്രട്ടറി ജന റൽ അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് പറഞ്ഞു സായുധ സംഘർഷങ്ങളും കാലാവസ്ഥാ വൃതിയാനവും മനുഷ്യാവകാശ ലംഘനങ്ങളും ലോകം നേരിടുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചോ ദനം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നതകൾ അവസാനിപ്പിച്ച് നല്ലൊരു ലോകം പടുത്തുയർത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അന്റോ ണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ജാതിയുടെ അടിസ്ഥാനത്തിൽ രാജൃത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുമ്പോൾ ഗാന്ധിജി നമ്മുടെ വെളിച്ചമാവുകയാണെന്ന് മന്ത്രി എ

ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുട്ടനെല്ലൂർ ഗവ കോളജിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി രാജ്യത്ത് ദലിതർ ആക്രമിക്കപ്പെടുമ്പോഴും പുരുഷ മേധാവിത്വം നിലനിൽക്കുമ്പോഴും ഗാന്ധിജിയെ ഓർത്ത് പുരോഗമന ആശയങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയല്ല വേണ്ടതെന്നും സ് നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് ഗാന്ധിജി പഠിപ്പിച്ചതെന്നും എ

മൊയ്തീൻ പറഞ്ഞു

സി

മഹാത്മാഗാ ന്ധിയെ വിൽപ്പനച്ചരക്കാക്കാനാണ് ആർ

പിയും ശ്രമി ക്കുന്നതെന്ന് ചടങ്ങിൽ കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി കൊച്ചി മരടിലെ ഫ്ളാറ്റിൽനിന്ന് താമസക്കാർ ഒഴിയേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കും ഗവൺമെന്റ് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച വെള്ളവും വൈദ്യുതിയും ഇന്ന് വിച്ഛേദിക്കും ഉടമകൾക്ക് ഒഴിയാൻ സമയം നീട്ടിനൽകില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു

സംസ്ഥാനത്തെ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് അവസാനിക്കും

മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാം മീണ കാസർകോട്ട് പറഞ്ഞു

കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് സംബന്ധിച്ച് പരാതി ലഭിച്ച സാഹചര്യത്തിൽ ആൾമാറാട്ടം തടയാൻ പ്രത്യേകം ശ്രദ്ധ യുണ്ടാകുമെന്നും സുതാര്യവും വിശ്വസനീയവുമായ വോട്ടെടുപ്പ് ഉറപ്പുവ രുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കശ്മീരിൽ ഭീകരവാദം വളർത്തുന്ന പാകിസ്താൻ അത് അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കശ്മീരിൽ ശാന്തിയും സമാധാനവും തിരിച്ചുകിട്ടുമെന്ന വിശാസത്തിലാണ് തങ്ങളെന്നും ജയശങ്കർ അറിയിച്ചു

പി ഇന്ന് കോഴിക്കോട്ടെത്തും

തുടർന്ന് കൽപറ്റ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിലും രാഹുൽ സംബന്ധിക്കും ഫാസിസ്റ്റ് ശക്തികൾ രാജൃത്തെ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരേ വെല്ലുവിളികൾ ഉയർത്തുകയാണെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറ ഞ്ഞു ഭയരഹിത ഇന്ത്യ എല്ലാവരുടെയും ഇന്ത്യ എന്ന സന്ദേശം ഉയർത്തി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പൌരാവകാശ സംരക്ഷണറാലി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹിഷ്ണുതയിലൂടെയും അഹിംസയിലൂടെയുമാണ് ഗാന്ധിജി സ്വാതന്ത്യം നേടിത്തന്നതെന്നും എന്നാൽ രാജ്യത്ത് അസഹിഷ്ണുത വളർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ദോഹ ലോക അത്ലറ്റിക് ചാംപ്യൻഷിപ്പിൽ മലയാളി താരം പി

സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പൃൻഷിപ്പിന്റെ ദക്ഷിണ മേഖല യോഗൃതാറൌണ്ട് മത്സരങ്ങൾക്ക് കൊച്ചി വേദിയാകും

കഴിഞ്ഞ വർഷം കേരളം യോഗ്യതാ റൌണ്ടിൽ നിന്ന് പുറത്തായിരുന്നു ലോക വനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് മോസ്കോയിൽ തുട ങ്ങും

കണ്ണൂരിൽ സമാപിച്ച കേരള ആരോഗ്യ സർവ്വകലാശാല സോണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷവിഭാഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജേതാക്കളായി കണ്ണൂർ ഗവ മെഡിക്കൽ കോളേജിനാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത് കേസിലെ രണ്ട് പ്രതികൾകൂടി പോലീസിന് മുന്നിൽ കീഴടങ്ങി നേമം ശാന്തിവിള സ്വദേ ശി നിസ്സാം മുട്ടത്തറ അരുൺകുമാർ എന്നിവരാണ് കീഴടങ്ങിയത്

എം

പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കൊൽക്കത്ത പ്ലീനം നിർദ്ദേശിച്ച ശുപാർശ കൾ ബഹുജനബന്ധം മെച്ചപ്പെടുത്തുന്ന നടപടികൾ തുടങ്ങിയവ യോഗം ചർച്ചചെയ്തു പശ്ചിമബംഗാളിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപ തിരഞ്ഞെടുപ്പിൽ ്കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നകാര്യം യോഗ ത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും അടുത്തവർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് നടപടികൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തുടങ്ങി

ഗ്രീൻപ്രോട്ടോക്കോൾ പാലനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ചെയർപേഴ്സൺ ജെസി ആൻറണി നിർവഹിച്ചു

ഭൂവിനിയോഗ ഉത്തരവിലും നിർമ്മാണ നിയന്ത്രണ ഉത്തരവിലും ഭേദഗതി ആവശ്യപ്പെട്ട് ഈ മാസം ഒമ്പതിന് മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും ചർച്ച നടത്തുമെന്ന് കർഷകസംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാര വാഹി കൾ അറിയിച്ചു ഉത്തരവ് ഭേദഗതി ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്തില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നും കർഷക സംഘം ജില്ലാ പ്രസിഡൻറ് സി

വർഗീസും് സെക്രട്ടറി എൻ വി ബേബിയും അറിയിച്ചു പോഷൺ അഭിയാന്റെ ഭാഗമായ പോഷൺ എക്സ്പ്രസ് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി ഇന്ന് കണ്ണൂർ തളിപറമ്പ് എന്നിവിടങ്ങളിൽ പ്രദർശനം നടത്തും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാസമ്മേളനം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മദ്യ മുതലാളിമാരെ പ്രീണിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ മദ്യനയം മാപ്പർഹിക്കാത്ത ഭരണകൂട ഭീകരതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

സുധീരൻ കുറ്റപ്പെടുത്തി

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തെ ലഹരി വിമുക്ത തൊഴിലിടം ആക്കുന്നതിന്റെ ഭാഗമായി ബ്രത് അനലൈസർ ടെസ്റ്റ് ആരംഭിച്ചു ഡയരക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻറെ നിർദ്ദേശ മനുസരിച്ചാണ് നടപടി കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന കാലോ ചിതമായി പരിഷ്കരിക്കണമെന്ന് ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ

യു ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു